നാളെയാണ് സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച വരെ പത്രികകൾ പിൻവലിക്കാം

എഫ്

സ്ഥാനാർത്ഥി വി

എഫ് സ്ഥാനാർത്ഥി ടി

ഡി എഫ്

മഞ്ചേശ്വരത്ത് യു ഡി

വാദം കേൾക്കാൻപോലും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബഞ്ച് തയ്യാറായില്ല അതിനിടെ ഫ്ളാറ്റുകളിൽ ഒഴിപ്പിക്കൽ നടപടി ഇന്നും തുടരുന്നു ഇന്നലെ മുതൽ താമസക്കാർ ഒഴിഞ്ഞുതുടങ്ങി ആശങ്കകൾ അകറ്റാൻ പരിസരവാസികളുടെ യോഗം വിളിച്ചു സബ്കളക്ടറുടെ അധ്യക്ഷതയിൽ മരട് നഗരസഭയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോഗം വിളിച്ചിട്ടുണ്ട്